റാഞ്ചിയിൽ സംഘടിപ്പിച്ച പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി

അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിന് പങ്കാളികളാകാൻ ഇന്ത്യൻ കമ്പനികളിൽ നിന്ന് കേന്ദ്രം താൽപര്യ പത്രം ക്ഷണിച്ചു

നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യോഗദിന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്

അഞ്ച് വർഷംകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിൽ കഴിഞ്ഞ ആരോഗ്യ പദ്ധതികളുമായി യോഗയെ സംയോജിപ്പിക്കുന്നതിന്റെ പ്രാധാന്യത്തെപ്പറ്റി പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു

അറിവിന്റെയും കർമത്തിന്റെയും ഭക്തിയുടെയും ഏറ്റവും അനുയോജ്യമായ സങ്കലനമാണ് യോഗയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി

പ്രി ന്യൂസ് ഡെസ്ക് ആകാശ്വാണി

സുനീഷ് വോയിസ് രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ചു യോഗാ ദിനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പങ്കെടുത്തു ലോകത്തിന് ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് യോഗ എന്നും ശാരീരിക മാനസിക ആരോഗ്യത്തിന് യോഗ പരിശീലനം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുമെന്നും രാഷ്ട്രപതി പറഞ്ഞു റെഡ്ഫോർഡിൽ ബ്രഹ്മകുമാരീസ് സംഘടിപ്പിച്ച ദിനാചരണത്തിൽ ഉപരാഷ്ട്രപതി വെങ്കയു നായിഡു പങ്കെടുത്തു പാർലമെന്റ് ഹൌസിൽ സംഘടിപ്പിച്ച ദിനാചരണത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള എം

ന്യൂഡൽഹിയിലെ രജ്പത്തിൽ സംഘടിപ്പിച്ച പ്രധാന യോഗാ ദിന പരിപാടിയിൽ കേന്ദ്ര മന്ത്രി മാരായ രാജ്നാഥ് സിംഗ് പ്രകാശ് ജാവേഡ്കർ പ്രളാദ് സിംഗ് പട്ടേൽ രാമേശ്വർ തെലി ഡൽഹി ലഫ്റ്റഇന്റ് ഗവർണർ അനിൽ ബെയ്ജാൽ ഗോവ മുഖ്യമന്ത്രി ഡോ ്ഷ്മോദ് സാവന്ത് സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമംഗ് എന്നീവ്രോടൊപ്പം പതിനയ്യായിരം പേർ യോഗാഭ്യാസം നടത്തി

ലോദി ഗാർഡനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാരായ രവിശങ്കർ പ്രസാദ് പീയുഷ്ഗോയൽ തുടങ്ങിയവരും പങ്കെടുത്തു തൽക്കോത്ര ഗാർഡനിൽ സംഘടിപ്പിച്ച യോഗാ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ധർമേന്ദ്ര പ്രധാൻ പട്ടേൽ നഗറിൽ സംഘടിപ്പിച്ചു പരിപാടിയിൽ കേന്ദ്ര മന്ത്രി മുക്താർ അബ്ബാസ് നക്വി നജഫ്ഗർഹിൽ കേന്ദ്ര മന്ത്രി കിരൺ റിജ്ജുജുവും പങ്കെടുത്തു

ഒരു റിപ്പോർട്ട്

ഗവർണർ ജഗ്ദ്ദീഷ് മുഖി രാജ്ഭവനിൽ യോഗ ആചരിച്ചു മുഖ്യമന്ത്രി സർബ്യാനന്ദ് സോനോവാൾ വിദ്യാഭ്യാസമന്ത്രി സിദ്ധാർത്ഥ് ഭട്ടാചാര്യ മുഖ്യമന്ത്രിയുടെ നിയമ ഉപദേഷ്ടാവ് ശന്തനു ഭർട്ടിക്എന്നിവർ ഗുവാഹത്തിലെ സരു സജയിൽ സംഘടിപ്പിച്ചു യോഗയിൽ സംബന്ധിച്ചു ഗുജറാത്തിൽ ഒന്നരക്കോടിയോളം ജനങ്ങളാണ് അന്താരാഷ്ട്ര ദിനാചരണ പരിപാടിയിൽ പങ്കെടുത്തത് ഹൃദയ സംരക്ഷണത്തിന് യോഗ എന്നതാണ് യോഗാചരണത്തിന്റെ ആശയം

രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലുടെ ചടങ്ങിൽ പങ്കെടുത്തു

ഉത്തർപ്രദേശിലെ യോഗദിനത്തിന് ലക്നൌവിലെ ഗവർണർ ഹൌസിൽ തുടക്കമായി

ജമ്മുകശ്മീരിൽ കെ കെ ഹക്കു സ്റ്റേഡിയത്തിൽ ജമ്മു ഡിവിഷണൽ കമ്മീഷണർ സഞ്ജു വർമ്മയടെ നേതൃത്വത്തിൽ യോഗദിനം ആചരിച്ചു

സ്പെഷ്യൽ യോഗ ഇൻസ്ട്രക്ടർ മൊഹമ്മദ് ഖാസിം യോഗ ക്ലാസ്സിന് നേതൃത്വം നൽകി

സമാധാനവും ആരോഗ്യവും നിറഞ്ഞ ഒരു ജനതയെ വാർത്തെടുക്കാൻ യോഗ വഴിയൊരുക്കുമെന്ന് ഗവർണർ പി

രാജ്ഭവനിൽ നടന്ന യോഗാ ദിനാചരണത്തോട് അനുബന്ധിച്ച് സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം യോഗ മതപരമായ ചടങ്ങല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗക്ക് സംസ്ഥാന വ്യാപകമായി പ്രചാരണം നൽകുമെന്നും ജാതിയും മി്തൂവും ഇല്ലാത്ത ഒന്നാണ് യോഗയെന്നും സംസ്ഥാനതല ദിന്റാചര്ണം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പ്പറ്ഞ്ഞു്

രാഷ്ട്രീയം കായികം ചലച്ചിത്ര രംഗം ഗായകർ വിദ്യാർത്ഥികൾ തുടങ്ങി വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങളാണ് യോഗയുടെ ഭാഗമായത് ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഡോ എ അബ്ദുൾ മോമെൻ റിയിൽവേ മന്ത്രി നൂറുൽ ഇസ്താം സുജൻ കപ്പൽ ഗതാഗത മന്ത്രി ഖാലിദ് മഹ്മൂദ്ചൌധരി തുടങ്ങിയവർ സംബന്ധിച്ചു

കേന്ദ്ര ബഡ്ജറ്റിനു മുന്നോടിയായാണ് യോഗം വിളിച്ച് ചേർത്തത്

നേരത്തേ സാമ്പത്തികവിദഗ്ദ്ധരും അടിസ്ഥാനസൌകരൃം കൃഷി ധനകാരൃം ഗ്ലിപണി ഗ്രാമവികസനം തുടങ്ങിയി വിവിധ മേഖലകളിലെ പ്രത്യീറ്റിധ്കളുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തിയിരുന്നു

ന്യൂഡൽഹിയിൽ പാലം വ്യോമസേനാ കേന്ദ്രത്തിൽ രാജ്നാഥ് സിംഗ് ജവാൻമാരുടെ ഭൌതിക അവശിഷ്ടത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു ഈ മാസം മൂന്നിനാണ് വ്യോമസേനാ വിമാനം കാണാതായത്

ഇതിനാൽ പങ്കാളിയാകാൻ ശേഷിയുള്ള ഇന്ത്യൻ കമ്പനികളിൽ നിന്നും നാവിക സേന താൽപര്യപത്രം ക്ഷണിച്ചു

പതിനാറാം ലോക്സഭയിൽ അവതരിപ്പിച്ച മുത്തലാഖ് നിരോധന ഓർഡിനൻസാണ് ഇപ്പോൾ പുതുക്കിയ ബില്ലായി അവതരിപ്പിക്കുന്നത്

എഡ്യൂക്കേഷൻ പ്രമോഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ദീപക് ഗുപ്ത അധ്യക്ഷനായ വെക്കേഷൻ ബഞ്ചാ് ഹർജി തള്ളിയത്

ഇന്ന് പുരിയിൽ എത്തുന്ന സംഘം ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് വിലയിരുത്തും

സന്ദർശനം പൂർത്തിയാക്കി കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും

ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും നാളെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നേരിടും

സംസ്ഥാനത്തിന്റെ മുഴുവൻ ഭാഗത്തും മഴയെത്താൻ ഇനിയും അഞ്ച് ദിവസം കൂടി കഴിയുമെന്ന് കേന്ദ്രം